നിതി ആയോഗിന്റെ ആറാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു

നിതി ആയോഗിന്റെ ആറാമത് പ്രശ്വേണിംഗ് കൌൺസിൽ യോഗത്തെ വീഡിയോ കോൺഫ്റ്റൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിലൂടെ രാജ്യത്തിന് ആവശ്യമുള്ളവ മാത്രമല്ല ലോകത്തിന് ആവശ്യമുള്ളത് കൂടി ഉത്പാദിപ്പിക്കാൻ പ്രാപ്തിയുണ്ടെന്ന് ഇന്ത്യ തെളിയിച്ചതായും അദ്ദേഹം പറഞ്ഞു വിശദവിവരങ്ങളുമായി സൈമ

പുതിയ ബജറ്റിനോടുള്ള അനുകൂല സമീപനം ഈമാറ്റത്തിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു

വാക്സിനേഷൻ സൌജന്യ പാചകവാതക സൌകര്യം ബാങ്ക് അക്കൌണ്ടുകൾ എന്നിവയിലെ വർദ്ധന പാവപ്പെട്ടവരുടെ ജിവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സഹായകമായെന്നുംഅദ്ദേഹം പറഞ്ഞു പ കോവിഡ് മഹാമാരിയെ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ചാണ് നേരിട്ടത് ലോകൃത്തിന് മുന്നിൽ ഇക്കാര്യത്തിൽ ഇന്ത്യ മാതൃകയായെന്നും പ്രധിനീമന്ത്രി പറഞ്ഞു

വകുപ്പുതലത്തിലും ആഭ്യന്തര തലത്തിലുമുള്ള വിഷയങ്ങൾ പരസ്പരം ചർച്ചു ചെയ്യാനുള്ള അവസരമാണ് ഗവേണിംഗ് കൌൺസിൽ പ്രദാനം ചെയ്യുന്നത് ന്യൂസ് ഡസ്ക് ആകാശവാണി

നിയന്ത്രണരേഖയിലെ ചൂഷൂൽ മോൾഡോയിൽ ചൈനീസ് ഭാഗത്താണ് ചർച്ച

പാങ്കോംഗ് തടാകത്തിന്റെ വടക്കൻ തെക്കൻ തീരങ്ങളിൽ നിന്ന് ഒന്നാംഘട്ട സേനാപിന്മാറ്റം പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച ഭാവിയിൽ ഇവിടെ സ്വീകരിക്കേണ്ട നടപടികളാണ് ് ഇരുപക്ഷവും ചർച്ചചെയ്യുന്നത്

ഇന്തൃ ഓസ്ട്രേലിയ സർക്കുലർ എക്കണോമി ഹാക്കത്തോണിന്റെ സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ ഓസ്ട്രേലിയ പങ്കാളിത്തത്തിന്റെ മുൻനിരയിൽ ഇരു രാഷ്ട്രങ്ങളിലേയും യുവാക്കൾ സ്റ്റാർട്ടപ്പുകൾ എന്നിവർ അണിനിരക്കുമെന്ന പ്രതീക്ഷയും പ്രധാനമന്ത്രി പങ്കുവച്ചു

ദരിദ്ര രാജ്യങ്ങളിലേക്കു്ള്ള കോവിഡ് വാക്സിൻ വിതരണം ശക്തിപ്പെടുത്താൻ നടപടി ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷ

നാളെ രാജ്യം അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ആചരിക്കുന്നതിനോട് അനുബന്ധിച്ചാണ് ഉപരാഷ്ട്രപതിയുടെ അഭ്യർത്ഥന

ഇംഗ്ലീഷിനൊപ്പം മാതൃഭാഷയ്ക്കും പ്രാധാനൃം നൽകണമെന്നും അദ്ദേഹം എം

കവരത്തി ദ്വീപിൽ ലക്ഷദ്വീപ് വനം പരിസ്ഥിതി ്വകുപ്പിന്റെ ആസ്ഥാന മന്ദിരമായ അടൽ പരിയാവരൺ ഭവൻ കേന്ദ്രമന്ത്രി നാടിന് സമർപ്പിച്ചിരുന്നു ലക്ഷദ്വീപിന്റെ പ്രകൃതി സൌന്ദര്യവും സുരക്ഷയും നിലനിർത്തി കൊണ്ട് തന്നെ ദ ദ്വീപുകളിൽ നിതി ആയോഗ് പദ്ധതിയുടെ കീഴിൽ അന്തർദേശീയ നിലവാരത്തിലുള്ള വിനോദ പദ്ധതികൾക്ക് പാരിസ്ഥിതിക അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി അറിയിച്ചു

അരുണാചൽ പ്രദേശിന്റെ സാംസ്കാരിക തനിമയും ഭൂപ്രകൃതിയും അതിമനോഹരമാണെന്നും അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

നിലവിലെ വി

ഭരണകക്ഷിയായ കോണ്ട്രിക്സിൽ നിന്ന് നാല് എം

ഫലപ്രഖ്യാപനം വെവ്വേറെ നടത്തുന്നതും ഘട്ടംഘട്ടമായി നടത്തുന്ന തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി

ഡിജിറ്റൽ രംഗത്തെ കേരളത്തിന്റെ നേട്ടങ്ങൾ പുതിയ തലത്തിലേക്കുയർത്താൻ സർവകലാശാലയ്ക്കാകുമെന്ന് അദ്ദേഹം പറഞ്ഞു

ഡിജിറ്റൽ സാങ്കേതിക രംഗത്തെ അത്യാധുനിക മേഖലകളിൽ പ്രാഗൽഭ്യമുള്ളവരെ വാർത്തെടുക്കാൻ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കഴിയട്ടെയെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി പ്രത്യാശിച്ചു

ഡി എഫ് ഐശ്വരൃകേരള യാത്ര തിരുവനന്തപുരത്തെത്തി വൈകുന്നേരം ആറ് മണിക്ക് ആര്യനാട് നടക്കുന്ന സമാപന സമ്മേളനം എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഉദ്ഘാടനം ചെയ്യും

ഡി എഫിന്റെ വികസന മുന്നേറ്റ ജാഥ സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു അതിനിടെ ബിജെപി സംസ്ഥാന അദ്ധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയ് യാത്രിയ്ക്ക് നാളെ കാസർഗോട്ട് തുടക്കമാകും

റോവറിൽ സൂക്ഷിച്ചിരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഭൂമിയിലെ കേന്ദ്രങ്ങളിലേക്ക് കൈമാറ്റം ചെയ്ത് വരികയാണ് അടുത്ത രണ്ട് വർഷം ചൊവ്വ ഉപരിതലത്തിൽ ചിലവഴിക്കുന്ന റോവർ ഗ്രഹത്തിലെ ജീവന്റെ സാന്നിധൃം സംബന്ധിച്ച കൂടുതൽ പരിശോധന നടത്തും

സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും സമാധാനം നിലനിർത്താനും അസമത്വങ്ങൾക്കെതിരെ പോരാടാനുമാണ് സാമൂഹ്യ നീതി ദിനാചരണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്

രൂപ കൂടി

വ്യാഴ്ച നടന്ന സെമി ഫൈനലിൽ സെറീന വില്യംസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് ഒസാക്ക ഫൈനലിൽ കടന്നത്